സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പ്പിണ്റ്റായി വിജയൻ

അന്തിമ വോട്ടാർ പട്ടിക് പ്രസിദ്ധീകരിച്ചു

ശ്രീ നാരായണഗുരുവിന്റെ പേരിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാളെ കൊല്ലത്ത് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും ലൈഫ് മിഷൻ കേസിൽ സി

ഹൈക്കോടതി

ക്ലൊവിഡിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ മറ്റ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പാടില്ലെന്ന നിലയിലാണ് സ്റ്റ്ക്കാർ പോകുന്നത്

കൊവിഡ് സൃഷ്ടിച്ച തൊഴിലില്ലായ്മ പരിഹരീക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചതായും ശ്രീ പിണറായി വിജയൻ പാഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നരേന്ദ്ര സിങ് തോമറും സംയുക്തമായി ഓണലൈനായാണ് ഉൽഘാടനം നിർവഹിച്ചത് കാർഷിക വിളകളുടെ മൂല്യവർദ്ധന ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കികൊണ്ടിരിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് വിവിധ സംസ്ഥാങ്ങളിൽ ഫുഡ് പാർക്കുകൾ സ്ഥാപിക്കുന്നതെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു പാലക്കാട് പ്രവർത്തനം ആരംഭിക്കുന്ന മെഗാ ഫുഡ് പാർക് കേരളത്തിലെ കർഷകർക്കും സംരഭകർക്കും വലിയ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് വലിയ കുതിച്ചു ചാട്ടത്തിന് ഫുഡ് പാർക്ക് വഴി തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

പെരിഞ്ചേരിക്കടവ് റഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങും തലശേരി ബ്രണ്ണൻ കോളജിലെ വികസനപദ്ധതികളും അദ്ദേഹം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു

അന്തിമ വോട്ടർപട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായ വോട്ടർമാർക്ക് പേര് ചേർക്കുന്നതിന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അവസരം കൂടി നൽകുമെന്നും കമ്മീഷൻ അറിയിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും

ബി ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി

കേസിൽ ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിട്ടില്ല

വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചട്ടവിരുദ്ധമല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു

തുടക്കത്തിൽ തന്നെ സി ബി

ഇനിയെങ്കിലും കേസ് പിൻവലിച്ച് അന്വേഷണവുമായി സി ബി ഐയോട് സഹകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

ബി ഐ തുടരാമെന്ന ഹൈക്കോടതിയുടെ നിർദേശം സർസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് ബി

അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

ശബ്രിമല മണ്ഡലകാല ഉത്സവത്തിന് മുമ്പായി റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്

കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നഗരത്തിലെ സ്വച്ച് ഭാരത് ദൌത്യം പദ്ധതിയുടെ ആറാം വാർഷികവും ആഘോഷിക്കും

തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി

അറിയിപ്പ് പത്തനംതിട്ട ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം

എൽ ക്രിക്കറ്റിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും